ഏതാനും ജില്ലകളിൽ രണ്ടാഴ്ചകൂടി നിരോധനം നീട്ടി

എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി രാജ്യം ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസവും ദേശീയ പുനരർപ്പണ ദിനവും ആചരിക്കുന്നു

അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ആകാശവാണി വാർത്താ വിഭാഗത്തിന്റെ ശബ്ദശേഖരത്തിൽ നിന്ന് പട്ടേലിന്റെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യും

ആകാശവാണിയിലെ എല്ലാ നിലയങ്ങളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ് വി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി വി മുരളീധരനും പങ്കെടുക്കും

തിരുവനന്തപുരത്തെ സെക്രട്ടറിയേറ്റ് ദർബാർ ഹാളിലും പ്രതിജ്ഞ എടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്

രുര കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഒരു മാസത്തെ നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കാനിരിക്കെ ഏതാനും ജില്ലകളിൽ രണ്ടാഴ്ചത്തേക്ക് കൂടി നിരോധനം നീട്ടിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു

മറ്റ് ചില ജില്ലകളിലെ തീരുമാനം വൈകിട്ടോടെ ഉണ്ടായേക്കും

രുര കോവിഡ് പശ്ചാത്തലത്തിൽ മാനസിക സമ്മർദ്ദം മറികടക്കാൻ മനഃപ്പൂർവ്വ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോ

കാരശ്ശേരി

ഒരു സമയം ഓരോ കേന്ദ്രത്തിലും പരമാവധി അനുവദിക്കുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്

രുര കോഴിക്കോട് ബീച്ചാശുപത്രിയിൽ ദേശീയ ആരോഗ്യ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഒരുക്കിയ തീവ്ര പരിചരണ വിഭാഗത്തിൽ ടെലി മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി കേരളപ്പിറവി ദിനത്തിൽ വൈകിട്ട് മന്ത്രി കെ കെ ശൈലജ പുതിയ സംവിധാനം ഉദ്ഘാടനം ചെയ്യും രും ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് മാറ്റിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പി സി ജോർജ്ജ് എം എൽ എ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു നിയമാസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും നിർദ്ദേശം നടത്താൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി രും പട്ടിക വിഭാഗത്തിന്റെ സംവരണത്തിൽ കൈ കടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മുന്നാക്കക്കാരിലെ പിന്നാക്ക വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചിലർ പട്ടിക വിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടിക വിഭാഗം സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പട്ടിക വിഭാഗക്കാരുടെ ഉന്നമനത്തിന് നിരവധി ക്ഷേമപദ്ധതികൾ നടപ്പാക്കി വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രും വാളയാർ പന്തളം സംഭവങ്ങളിൽ പീഡനം അനുഭവിച്ച കുടുംബത്തോടൊപ്പമാണ് ഗവൺമെന്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കുറ്റവാളികൾ ആരായാലും ഒരു ദാക്ഷിണ്യവും നൽകാതെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കും കുടുംബങ്ങൾക്ക് കഴിയുന്നത്ര സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രും കേരളത്തിന് ഒരിക്കൽക്കൂടി ലഭിച്ച ഭരണമികവിന്റെ അംഗീകാരം ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇന്നലെ പുറത്തുവന്ന പബ്ലിക് അഫയേഴ്സ് ഇൻഡക്സിൽ തുടർച്ചയായ നാലാം തവണയും കേരളത്തെ മുൻനിർത്തി മികച്ച ഭരണം തെരഞ്ഞെടുക്കുകയായിരുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് നേട്ടമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ദുബായിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും വൈകിട്ട് ഏഴരയ്ക്ക് ഷാർജയിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സൺ റൈസേഴ്സ് ഹൈദരബാദിനെയും നേരിടും ദേഴ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളും സാമൂഹ്യ അടുക്കളയും ഉച്ച കഴിഞ്ഞ് മന്ത്രി കെ കെ ശൈലജ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

എൽ എ അധ്യക്ഷനായിരിക്കും രുര പാലക്കാട് ജില്ലയിൽ ക്ഷീര വികസന വകുപ്പിന്റെ വിവിധ പദ്ധതികൾ മന്ത്രി കെ

പൊമ്പ്ര ക്ഷീര വികസന സഹകരണ സംഘം മീനാക്ഷിപുരം ചെക്ക്പോസ്റ്റിലെ നവീകരിച്ച പാൽ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം കുമരന്നൂർ മൂലത്തറ കിടാരി പാർക്കുകൾ കുമരന്നൂർ ബൾക്ക് മിൽക്ക് കൂളർ എന്നിവ മന്ത്രി നാടിന് സമർപ്പിക്കും രുഭ തിരുവനന്തപുരം വിതുര ഗ്രാമപഞ്ചായത്തിലെ മണലി കല്ലാർ വാർഡുകളിൽ നടപ്പാക്കുന്ന ആറ്റുമൺപുറം നീർത്തട പദ്ധതി ഉച്ചയ്ക്ക് മന്ത്രി വി

സമഗ്ര മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയും തോടുകളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണം ഉറപ്പ് വരുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം രുര സ്പോർട്സ് കൌൺസിൽ കോട്ടയം ജില്ലാ പ്രസിഡന്റും സി

എം നേതാവുമായ ഐമനം ബാബു നിര്യാതനായി

സംസ്കാരം ഉച്ച കഴിഞ്ഞ് കുടയംപടി കൊട്ടാരപ്പറമ്പ് വീട്ടുവളപ്പിൽ നടത്തും രംഭ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇന്ന് കൂടി പേര് ചേർക്കാം വോട്ടർപട്ടികയിലെ പരാതികളിലും ആക്ഷേപങ്ങളിലും ഓൺലൈൻ വഴിയോ മൊബൈൽ വീഡിയോ കോൾ വഴിയോ ഹിയറിംഗ് നടത്താൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

രുമ ഇടുക്കി ആർച്ച് ഡാം നിർമ്മിക്കാൻ സ്ഥലം കാണിച്ചു കൊടുത്ത ആദിവാസി ഗോത്ര തലവൻ ചെമ്പൻ കൊലുമ്പന്റെ നവീകരിച്ച സമാധി സ്മാരകം രാവിലെ വെള്ളാപ്പാറയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

തനത് കേരള തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച അഷ്ടകോൺ മണ്ഡപത്തിൽ കരിങ്കൽ പഞ്ചവർഗ്ഗ പീഠത്തിലാണ് ചെമ്പൻ കൊലുമ്പന്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്

വൈകിട്ട് ഏഴരയ്ക്ക് ഓൺലൈനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ഡോ ശശി തരൂർ എം

മുൻ കേന്ദ്ര മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക കലാ രംഗങ്ങളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും

ഇതിന്റെ ലേലം നവംബർ മൂന്നിന് മുംബൈ ഫോർട്ടിലെ റിസർവ് ബാങ്ക് ഓഫീസിൽ ഇ കുബേർ സംവിധാനത്തിൽ നടത്തും